നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള ബി എം പി ഉദിത് രാജ് കോൺഗ്രസിൽ ചേർന്നു

ചൈനയിലെ വൂഹാനിൽ നടക്കുന്ന ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പി

സിന്ധു സൈന നെഹ്വാൾ സമീർ വർമ്മ എന്നിവർ പ്രീ കാർട്ടറിൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലേയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ബീഹാറിലെയും വിവിധ സ്ഥലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെ ഇന്ന് അഭിസംബോധന ചെയ്യും

അതിനിടെ ആറാം ഘട്ടത്തിലെ ത്ാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കുകയാണ് പത്രികാസമർപ്പണം ഇന്നലെ അവസാനിച്ചിരുന്നു

ഈസ്റ്റ് ചമ്പാരൻ വെസ്റ്റ് ചമ്പാരൻ വാൽമീകി നഗർ വൈശാലി സിവാൻ ഷിയോഹർ മഹ്രാജ്ഗഞ്ച് ഗോപാൽഗഞ്ച് എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ

വെള്ളിയാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം

കരിംഗഞ്ചിലെ നാല് പോളിംഗ് ബൂത്തുകളിലും ആട്ടോണമസ് ഡിസ്ട്രിക്റ്റ് മണ്ഡലത്തിലെ ഒരു ബൂത്തിലും വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നതായി കരിംഗഞ്ച് ഡപ്യൂട്ടി കമ്മീഷണർ എം

വിവിധ രാഷ്ട്രീയ ഷ്ടാർട്ടികളിലെ ഉന്നത നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികളിൽ സജീവമാ്സ്ക് മുതിർന്ന ബി ജെ

മിഡ്നാപൂർ ഹൌറ ജില്ലകളിലെ ബി ജെ

തൃണമൂർ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഹുഗ്ലി നാദിയ ജില്ലകളില്ലെ ഒട്ടേറെ പ്രചാരണ യോഗങ്ങളിൽ ഇന്ന് പങ്കെടുക്കും

ഇതോടനുബന്ധിച്ച് സുരു നദിയുടെ നാല് കിലോമീറ്ററോളം വരുന്ന തീരപ്രദേശങ്ങൾ വൃത്തിയാക്കി

ഈദും ദീപാവലിയും ആഘോഷിക്കുന്നതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരാഘോഷമാക്കുംവിധം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് തെരഞ്ഞടുപ്പ് ഓഫീസർ പറഞ്ഞു

ഉത്തർപ്രദേശിലെ വാരാണസിയിൽനിന്നുമാണ് ശ്രീ

പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ സാന്നിധൃത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ വച്ചാണ് ശ്രീ രാജിന്റെ കോൺഗ്രസ് പ്രവേശനം

ജെ പി ടിക്കറ്റ് നൽകിയിരുന്നില്ല മെഡിക്കൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാദേശിക സംവരണം മാനദണ്ഡമാകില്ലെന്നും നീറ്റ് പരീക്ഷയിലെ യോഗൃത മാത്രമായിരിക്കും അടിസ്ഥാനമെന്നും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് നൽകി

പ്രൂദേശ്രവാസികൾക്ക് മെരിറ്റിൽ ആനുകൂല്യം ലഭിക്കുമെന്ന് പ്രോസ്പെക്ടസിൽ പറയുന്ന ക്ടുമ്യം കോടതി തള്ളിക്കളഞ്ഞു ജസ്റ്റിസുമാരായ മഹേഷ് ഗ്രോവർ ലലിത ഭദ്ര എന്നിവർ ഉൾപ്പെട്ട ബഞ്ചാണ് ഉത്തരവ് നൽകിയത് കേന്ദ്ര ഭരണ പ്രദേശമായ ഛണ്ഡീഗഡിൽ നിന്നും മെഡിക്കൽ ബിരുദാനന്തര കോഴ്സിന് പ്രവേശനം തേടുന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ലഭിച്ച പരാതികളിന്മേലാണ് കോടതി ഉത്തരവ്

വിഷയത്തിൽ അമിക്കസ് ക്യൂറിയായിരുന്ന മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിയ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസ് രഞജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ചിന്റെ നിർദ്ദേശം

മേഖലയിൽ അനിയന്ത്രിത ഖനനം മുമ്പും ദുരന്തങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്

ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ലിബിയയിലെ ഇന്ത്യക്കാരോട് ശ്രീമതി സുഷമ സ്വരാജ് അഭ്യർത്ഥിച്ചു ലിബിയയിലെ ട്രിപ്പോളിയിൽ കഴിയുന്ന ഇന്ത്യക്കാർ ഉടൻ മടങ്ങണമെന്നും സമയം കഴിയുന്തോറും യുദ്ധമേഖലയിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും വിദേശകാരൃമന്ത്രി നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നു

സുരക്ഷാ സംവിധാനങ്ങളിൽ അടിയന്തര മാറ്റങ്ങൾ വരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ആക്രമണത്തെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും വിവരം തന്നെ അറിയിച്ചിരുന്നില്ലെന്ന് സിരിസേന പറഞ്ഞു

കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ നടപടികളെടുത്തായി പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ നേരത്തെ അറിയിച്ചിരുന്നു ആക്രമണം സംബന്ധിച്ചുള്ള രഹസ്യ വിവരം ഇന്ത്യ കൈമാറിയിരുന്നതായും ഭീകതയ്ക്കെതിരെ ഇരുരാജ്യങ്ങളുടെയും സഹകരണം ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിൽ ഐ എസിന്റെ പങ്കും അന്വേഷണ വിധേയമാണെന്ന് റെനിൽ വിക്രമസിംഗെ അറിയിച്ചു

വനിതാ വിഭാഗം സിംഗിൾസിൽ നാലാട് പ്രസീഡ് പി

അഞ്ചാം സീഡ് കിഡംബി ശ്രീകാന്ത് ഇന്ന് ആദ്യ റൌണ്ടിൽ മത്സരിക്കാനിറങ്ങും

ഓപ്പണർ ഷെയ്ൻ വാട്സന്റെ ഇന്നിംഗ്സാണ് ചെന്നൈയ്ക്ക് കരുത്തായത്